രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്ത്രങ്ങൾ മെനഞ്ഞും സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ച നടത്തിയും രാഷ്ട്രീയ പാർട്ടികൾ ബിജെപിയുടെ ആദ്യ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കും

ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാനെ ന് പ്രേരിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തോടൊപ്പം നിലക്കൊള്ളാൻ ചൈനയ്ക്ക് ബാധ്യതയുടെ ന്ന് അമേരിക്ക

ആഘോഷിക്കുന്നു

ക്ലോൺഗ്സ് ഉൾപ്പെടെ മിക്ക പ്രമുഖ പാർട്ടികളും സ്ഥാനാർത്ഥി പ്രിട്ടിക ഇതിനകം പുറത്തിറക്കിയിട്ടു ബിജെപിയുടെ ലോക്സുഭാ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്ന് പുറത്തിറക്കും വിശദാംശങ്ങളുമായി തുളസീദാസ്

ഇതിനായി ഏഴുമണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടു സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി ഇന്ന് പുറത്തിറക്കി

തലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനങ്ങളിലും സീറ്റു വിഭജനം സംബന്ധിച്ചും പ്രകടനപത്രികകൾക്ക് അന്തിമ രൂപം നൽകാനുള്ള കൂടിക്കാഴ്ചകളും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഫെയ്സ് ബുക്ക് വാട്ട്സാപ്പ് ടിറ്റർ ഗൂഗീൾ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാമർശങ്ങൾക്കാണ് നിയന്ത്രണം കൊ ചട്ടലംഘനത്തിനെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് ഇന്റർനെറ്റ് മൊബൈൽ അസോസിയേഷനും ബന്ധപ്പെട്ട മാധ്യമഅധികൃതരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച നിയമാവലിയിൽ പറയുന്നു

ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ സാന്നിധൃത്തിൽ ബിജെപിയുടെ ന്യൂഡൽഹി ആസ്ഥാനത്ത് ചടങ്ങിലാണ് ഗാംഗ്വ ബിജെപി അംഗത്വം സ്വീകരിച്ചത്

സ്ഥാനാർത്ഥികളുടെ ചെലവ് പരിധി ്ര നിരീക്ഷിക്കാൻ എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാര്യെ നിയമിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രി വിവിധയിടങ്ങളിൽ ഡി എൽ കുടുംബ സംഗമങ്ങളിൽ എഫ് സംസാരിക്കുകയായിരുന്നു

കോലീബി സഖ്യത്തിനെതിരെ നേരത്തെ ജനങ്ങൾ സ്വീകരിച്ച നിലപാട് കേരളം ക താണ് വോട്ടിനു വേ ി മാറ്റാനുള്ളതല്ല മതനിരപേക്ഷതയെന്നതയെന്നും അദ്ദേഹം പറഞ്ഞു

എമ്മും ബി ജെ

യും തമ്മിൽ കേരളത്തിൽ വലിയ തോതിലുള്ള ധാരണ രൂപപ്പെട്ടു വരുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു

എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു

പല്ലൻവാലയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പാക് സേന ഇന്ന് പുലർച്ചെ ഇന്ത്യൻ പോസ്റ്റുകൾക്കു നേരെ വെടിയുതിർക്കുകയും ഗ്രേന്നൈഡ് ആക്രമണം നടത്തുകയും ചെയ്യുകയായിരുന്നു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

ചൊവ്വാഴ്ചയും ഇതേമേഖലയിൽ പാകിസ്ഥാൻ സേന നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ ഒരുജവാൻ വീരമൃത്യു വരിച്ചിരുന്നു

ബരാമുള്ളയിലെ കലന്ദാ ക ി ക്രീരി മേഖലയിൽ വെളിച്ചകുറവും മോശം കാലാവസ്ഥയും മൂലം നിർത്തിവെച്ച നീക്കം ഇന്ന് പുലർച്ചെ പുനരാരംഭിച്ചു

മേഖലയിൽ സേനയുടെയും ഗ്രൂപ്പിന്റെയും സി ആർ പി എഫിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വെടിവെയ്പ്പ് നടന്നതെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു

ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ വിമുഖതു കാണിച്ച ചൈനയുടെ നിലപാടിൽ നിരാശരാണെന്ന് അമ്മേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി

ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ മൌനം പാലിക്കുകയും ് ഇന്ത്യയിൽ വീ ും ഭീകരാക്രമണത്തിന് കാരണമാകുകയും ചെയ്താൽ അത് പാകിസ്ഥാന് പ്രശ്നങ്ങൾ ഉ ാകുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ സ്വീകരിച്ച നടപടികളെ കുറിച്ചും വൈറ്റ് ഹൌസ് വിശദീകരണം തേടി അന്താരാഷ്ട്ര പങ്കാളികളോടൊപ്പം പാകിസ്ഥാന്റെ നിലപാടുകൾക്കെതിരെ സമ്മർദ്ദം തുടരുമെന്നും വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വൃക്തമാക്കി

മോദിയെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വിദേശകാര്യ വക്താവ് രാവീഷ് കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇയാളെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെത്തിക്കാൻ ബ്രിട്ടീഷ് അധികൃതരുമായി നിരന്തരം ചർച്ചനടത്തി വരികയാണെന്ന് ശ്രീ രാവീഷ് കുമാർ അറിയിച്ചു

വർണങ്ങൾ വാരിപ്പൂശി ഒരുമയുടെ സന്ദേശം നൽകീയാൻണ് ഹോളി ആഘോഷം

ഇ യിലെ അബുദാബിയിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം

ഇന്നലെ നട സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെ മറുപടിയില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ്ഹൈനലിൽ എത്തിയത്

കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ സ്ക്രീനിംഗിലൂടെയും പരിശോനയിലൂടെയും രോഗം തിരിച്ചറിയാൻ സാധിക്കും